മുന്നോട്ട് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിക്ഷേപങ്ങൾക്ക് യോജിച്ചു അവസരമാണിതെന്നും പ്രധാനമന്ത്രി

കേരളത്തിൽ സമ്പർക്ക രോഗികൾ കൂടുന്നു

ലോകത്ത് കോവിഡ് മരണങ്ങൾ ആറുലക്ഷം കടന്നു

വെള്ളപ്പൊക്ക ദുരിതത്തിൽ അസം മുഖ്യമന്ത്രി സർബാന്ദ സോനോവാൾ ഇന്ന് പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും

ഐബിഎം സിഇഒ അരവിന്ദ് കൃഷ്ണയുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക വിദ്യയും ഡാറ്റയും സംയോജിപ്പിച്ചുള്ളൂ താങ്ങാവുന്നതും തടസ്സ രഹിതവുമായ ആരോഗൃ സംവിധാഗ്നത്തിന്റെ വികസനത്തിലേക്ക് ഇന്തൃ എത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതി വർദ്ധിച്ചു വരുന്നതായും ഇതിനായുള്ള അടിസ്ഥാന സൌകരൃം മറ്റ് സംവിധാനങ്ങൾ പ്രധാനമന്ത്രി വ്യക്തമാക്കി

വിദ്യാർത്ഥികളിൽ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക അവരെ സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആവിഷ്ക്കരിച്ചിരിക്കുന്നത് മാനവവിഭവ ശേഷി വികസന സഹമന്ത്രി ഉന്നത വിദ്യാഭ്യാസ വിഭാഗം സെക്രട്ടറിമാർ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗ്യസ്ഥൻ തുടങ്ങിയവർ പങ്കെടുക്കും

ബിഹാറിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും ജനങ്ങളുടെ യാത്രകൾ ഒഴിവാക്കാനും സംഘം നിർദ്ദേശിച്ചു

അതേസമയം കോവിഡ് സ്ഥിതിഗതികൾ പഠിക്കാൻ ഐസിഎംആർ സംസ്ഥാനത്ത് വ്യാപക പരിശോധന സംഘടിപ്പിച്ചിട്ടുണ്ട്

കരകുളം സ്വദേശിക്ക് ഷ് നേരത്തെ രോഗ ലക്ഷണം ഉണ്ടായിരുന്നതിനാൽ പ്രത്യേക മുറിയിലാണ് പരീക്ഷ എഴുതിയത് പൊഴിയൂർ സ്വദേശിക്കൊപ്പം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ ഉടൻ നിരീക്ഷണത്തിലാക്കും എന്നാൽ കൂടെ പരീക്ഷ എഴുതിയവർക്ക് രോഗം പകരാൻ സാധ്യത കുറവാണെന്ന് ജില്ലാ സർവെയ്ലൻസ് ഓഫീസർ ജോസ് ഡിക്രൂസ് പറഞ്ഞു

ഇദ്ദേഹത്തിന്റെ മരണം കോവിഡ് മൂലമാണോ എന്ന് പരിശോധനകൾക്കു ശേഷമേ വൃക്തമാകൂ എന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു അതിനിടെ എറണാകുളം മെഡിക്കൽ കോളേജിലും ഒരു കോവിഡ് മരണം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു

മനുഷ്യരിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ മികച്ച പ്രതികരണം ഉണ്ടാക്കാൻ വാക്ട്സിന് കഴിഞ്ഞതായി നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു

രജിസ്ട്രേഷന്റെ ആദ്യ ദിവസം മികച്ചു പ്രതികരണമാണ് ലഭിച്ചതെന്ന് പരീക്ഷണങ്ങളുടെ ചുമതലയുള്ള ഡോ

ശ്വാസകോശ രോഗബാധിതനായി ലക്നൌവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു